ആറാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി ഏഴാം ഘട്ടത്തിലേയ്ക്കുള്ള പ്രചാരണം സജീവം

എൽ ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം ചെന്നൈ സൂപ്പർ കിംഗ്സും മുംബൈ ഇന്ത്യൻസും നേർക്കുനേർ

കുടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

കേന്ദ്ര മന്ത്രിമാരായ രാധാ മോഹൻ സിങ് ഹർഷവർധൻ മനേകാഗാന്ധി നരേന്ദ്രസിംഗ് തോമർ കൃഷൻ പാൽ ഗുർജാൻ റാവു ഇന്ദ്രിജ്ത്ത് സിങ് എന്നിവരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ ക്രിക്കറ്റർ കൂടിയായ ഗൌതം ഗംഭീർ ഭോപ്പാലിലെ ബി ജെ ഡി സ്ഥാനാർത്ഥി സാധ്പി പ്രഗ്യാ സിങ് സിങ് താക്കൂർ ഡൽഹി ബി ജെ

അധ്യക്ഷൻ മനോജ് തിവാരി കോൺഗ്രസ് നേതാക്കളായ ഷീല ദീക്ഷിത് ജ്യോതിരാദിത്യ സിന്ധൃ ദിഗ്വിജയ് സിംഗ് ഭൂവിന്ദർ സിങ് ഹോഡ എന്നിവരും ബോക്സറായ വിരേന്ദർ സിങ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരും ജനവിധി തേടുന്ന പ്രമുഖരാണ് ഈ ഘട്ടത്തിലേക്കുള്ള പരസൃപ്പിച്ചാർണം ഇന്നലെ വൈകിട്ടോടെ അവസാനിച്ചിരുന്നു

ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ മേഖലയിലുമാണ് തെരഞ്ഞെടുപ്പ് ഏഴാംഘട്ടത്തിൽ നടക്കുന്നത്

ഇതോടൊപ്പം ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റുകളിലും ജാർഖണ്ഡിലും ഛണ്ഡിഗഡിലും മൂന്ന് സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കളെല്ലാം പ്രചാരണ ്പരിപാടിയുമായി രംഗത്തുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റോബർട്ട്സ് ഗഞ്ചിലും ഗാസിപൂരിലും തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് അധൃക്ഷൻ രാഹുൽഗാന്ധി ഷാജപൂർ ധാർ ഖാർഗോർ എന്നിവിടങ്ങളിൽ പ്രസംഗിക്കും ഇന്ന് രാവിലെ ജാർഖണ്ഡിലെ പകൂറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബി ജെ

ജാർഖണ്ഡ് മുഖ്യമന്ത്രി രഘുഭർ ദാസും അദ്ദേഹത്തെ അനുഗമിക്കും

ഇതേ കേസിൽ തുല്യ ജോലിയ്ക്ക് തുല്യ വേതനം എന്ന പാട്നാ ഹൈക്കോടതി ഉത്തരവും സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട് ജസ്റ്റിസ്മാരായ അഭയ് മനോഹർ സാപ്റേ യു

രണ്ട് വിഭാഗക്കാരേയും രണ്ടായി മാത്രമേ കാണാൻ കഴിയൂ എന്ന ബീഹാർ ഗവൺമെന്റിന്റെ നടപടി ശരിവച്ച കോടതി ഗവൺമെന്റ് നയം കരാർ അധ്യാപകർക്കെതിരായ നീതി നിഷേധമല്ലെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ജസ്റ്റിസ് സജ്ജീവ് ഖന്നയുമടങ്ങുന്ന ബഞ്ചിന്റേതാണ് ഉത്തരവ് വിട്ടയക്കപ്പെടുന്നവർ ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും ഇന്ത്യക്കാരായ രണ്ടുപേരുടെ ആൾ ജാമ്യവും മോചനശേഷമുള്ള അവരുടെ താമസസ്ഥലം സംബ ന്ധിച്ച വിവരങ്ങളും നൽകണമെന്ന് കോടതി ക്ല നിർദ്ദേശിച്ചു വിദേശീയരായ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതു ബ്ലർബ്ബന്ധിച്ച് നയതന്ത്ര തലത്തിലെ പുരോഗതി വിലയിരുത്താൻ സാവകാശമനുഷ്ദ്രീക്കാമെന്ന അസം ഗവൺമെന്റിന്റെ നടപടി ശരിവച്ച കോടതി ഇത്തരം കേസൂക്കൾ ക്കെകാര്യം ചെയ്യുന്നതിന് കൂടുതൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കാനും അനുമതി കൽകി

മധ്യപ്രദേശിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശങ്ങളെ തുടർന്നാണ് നടപടി

സിദ്ദു മാതൃകാപെരുമാറ്റചട്ടം ലംഘിച്ചതായാണ് കമ്മീഷൻ പ്രഥമദൃഷ്ട്യാ കണ്ടെത്തിയത്

കാശ്മീരിനെ രാജ്യത്തിന്റെ ഇതരഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാതയാണ് മണ്ണിടിച്ചിൽ അവശിഷ്ടങ്ങൾ നീക്കി ഗതാഗത യോഗ്യമാക്കിയത്

ശക്തമായ സൂരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് നിലവിൽ ഭീഷണികളില്ലെന്നും അയൽ സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും സംഭവങ്ങളെ മുൻനിറുത്തിയാണ് സുരക്ഷ ശക്തമാക്കിയതെന്നും തൃശൂർ റെയ്ഞ്ച് ഐ ജി ബൽറാം കുമാർ ഉപാധ്യായ സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര എന്നിവർ പത്രസമ്മേളനത്തിൽ വൃക്തമാക്കി ്പൂരദിവസം വടക്കുനാഥ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാവരേയും പരിശോധനയ്ക്ക് വിധേയമാക്കും സ്ത്രീകളുടെ പരിശോധനയ്ക്കായി പ്രത്യേക വനിതാസ്കാഡും ഉണ്ടായിരിക്കും

വിദേശികൾ താമസിക്കുന്ന ഹോട്ടലുകളിലെ അധികൃതർ ഇവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറണം

വി ഐ പി ഗൃാലറികളിലുൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്

രാഷ്ട്രീയം സാമ്പത്തികൃഷ്ട്ര്യസായം ശാസ്ത്രം ദേശീയം അന്തർ ദേശീയ വിഷയങ്ങൾ എന്നിവയും ചർച്ചു നടന്നു

ഇന്ത്യ പ്സഫിക് കാലാവസ്ഥാ വൃതിയാനം ദുരന്ത നിവാരണം എന്നീ ് മേഖലകളിലുക അന്തർദേശീയ സൌരോർജ്ജ മേഖലയിലും സഹകരണം ശക്തിപ്പെടുത്താൻ പ്രാർമുണ്ട്യായി

അതേസമയം അമേരിക്കയും ചൈനയും രണ്ടുദിവസമായി നടത്തിവരുന്ന വ്യാപാര ചർച്ചകൾ തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ അറിയിച്ചു

കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സംഘം വിലയിരുത്തി അടിസ്ഥാനഘടനയിൽ മാറും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ രാസപരിശോധനയും നടത്തി രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ സൂര്യക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടു ക്കുമെന്നും അധികൃതർ അറിയിച്ചു സംരക്ഷിത സ്മാരകങ്ങളായ ക്ഷേത്രങ്ങളുടെ നഷ്ടം ശരിയായ രീതിയിൽ വിലയിരുത്തുന്നതിനാണ് സംസ്ഥാന ഗവൺമെന്റ് പുരാവസ്തു വകുപ്പിന്റെ സഹായം തേടിയത്

വിമാനം പുറപ്പെടുന്നതിന് മുന്ന് മണിക്കൂർ മുമ്പ് ലഭ്യമായ സീറ്റുകളുടെ ടിക്കറ്റ് നിരക്കിൽ നല്ലൊരു ശതമാനം ഇളവ് വരുത്താൻ എയർ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ ആസ്ഥാനത്ത് നടന്ന അവലോകനയോഗത്തിലാണ് ഈ തീരുമാനം എയർഇന്ത്യയുടെ ബുക്കിംഗ് കൌണ്ട റുകളിലൂടെയും എയർഇന്ത്യമൊബൈൽ ആപ്പ് എയർ ഇന്ത്യ വെബ്സൈറ്റ് എന്നിവയിലൂടെയും ട്രാവൽ ഏജന്റ് വഴിയും യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കുന്നതാണ്

ഇന്നലെ വിശാഖപട്ടണത്തിൽ നടന്ന മീത്സരത്തിൽ ആറ് വിക്കറ്റിനായിരുന്നു ചെന്നൈയുടെ ജയം നാളെ ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈ നേരിടും

നിലവിലെ ചാമ്പ്യന്മാരാണ് ചെന്നൈ

ചെന്നൈ യിക്കായി ഡൊയിൻ ബ്രാവോ രവീന്ദ്ര ജഡേജ ദീപക് ചഹർ ഹർഭജൻ സിംഗ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി